കൂടുതൽ മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക നൽകി

സി പ്രസിഡണ്ട് മുല്ലപ്പളളി രാമചന്ദ്രൻ

ജനപക്ഷം പാർട്ടി എൻ ഡി

സംസ്ഥാനത്ത് ലോക്സഭാതെരഞ്ഞെടുപ്പിന് നാമനിർദേശ പത്രികാസമർപ്പണം പുരോഗമിക്കുന്നു പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ യു

എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും എൽ

എഫ് സ്ഥാനാർത്ഥി എ

എഫ് സ്ഥാനാർത്ഥികളായ പി ജയരാജൻ വടകര യിലും പി

ശ്രീമതി കണ്ണൂരിലും പി പി സുനീർ വയനാട്ടിലും കെ

സതീഷ് ചന്ദ്രൻ കാസർകോട്ടും പത്രിക സമർപ്പിച്ചു തിരു വനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരനും എറ ണാകുളത്ത് എൽ

എഫിലെ പി രാജീവും പത്രിക നൽകി ആല പ്പുഴയിൽ യു

എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനും പത്രിക സമർപ്പിച്ചു

എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റ് ചാലക്കുടിയിലും എൻ

എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലും ഇന്ന് പത്രിക നൽകും

രാഹുൽഗാന്ധി ദക്ഷിണേന്തൃയിൽ മത്സരിക്കുന്നത് സംബ ന്ധിച്ച് തീരുമാനം രണ്ട് ദിവസത്തിനകം ഉണ്ടായേക്കും ഇന്നോ നാളെയോ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട് തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന പാർട്ടി പ്രവർത്തക രുടെ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം ഇന്നലെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാലുടൻ ചില നേതാക്കളുടെ യഥാർത്ഥ മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാ ട്ടുമെന്ന് കെ

സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവർത്തിച്ചു മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ മുഖം മൂടി അഴിഞ്ഞുവീഴുന്നത് നമുക്ക് കാണാമെന്ന് അദ്ദേഹം വടകര യിൽ പറഞ്ഞു വയനാട്ടിലെ സ്ഥാനാർത്ഥിക്ക് നാമനിർദേശ പത്രിക സമർപ്പിക്കാൻ അടുത്തമാസം നാലുവരെ സമയമുണ്ടെന്നും മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് അടി യന്തരമായി തീരുമാനമുണ്ടാകുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു തെക്കേ ഇന്ത്യയിൽ രാഹുൽഗാന്ധി മത്സ രിക്കുന്നത് മതേതര ജനാധിപത്യ പാർട്ടികൾക്ക് ഗുണം ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കുന്ന സി

എം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ചോദി ച്ചു കോൺഗ്രസിന്റെ സീറ്റ് കുറയ്ക്കുകയാണ് ബി

പി യുടെയും സി

എമ്മിന്റെയും ലക്ഷ്യമെന്നും അതിനായി അവർ കൂട്ടുകെട്ടുണ്ടാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന ഭരണങ്ങളിൽ ജനം നിരാശരാണെന്നും യു

എഫിനെ യാണ് അവർ പ്രതീക്ഷയോടെ നോക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു വയനാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീ രുമാനം എന്തുതന്നെയായാലും വൈകരുതെന്ന് മുസ്ലിംലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അനിശ്ചിതത്വം നീട്ടിക്കൊണ്ടുപോകുന്നത് ഗുണം ചെയ്യില്ലെന്ന് അദ്ദേഹം മലപ്പുറത്ത് ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ അറിയിച്ചു വയനാട്ടിൽ മാത്രമല്ല തൊട്ട ടുത്ത മണ്ഡലങ്ങളെയും ഇത് ബാധിക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഒട്ടാകെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ളതിനാൽ തീരുമാനം വൈകുന്നത് സ്വാഭാവികമാണ് തീരുമാനം വരുമ്പോൾ നിരാശ മാറുമെന്നും രാഹുൽഗാന്ധിയെ നിറഞ്ഞ മനസ്സോടെ വയ നാട്ടിൽ സ്വീകരിക്കു മെന്നും കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു സ്ഥാനാർത്ഥി ഇല്ലാതെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു

ഐ എമ്മിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ രാഹുൽഗാന്ധി തീരുമാനം പ്രഖ്യാപിക്കാത്തതെന്ന ചോദ്യത്തിന് ലീഗ് വേറൊരു കക്ഷിയാണെന്നും കോൺഗ്രസ് സീറ്റിൽ തീരു മാനം എടുക്കേണ്ടത് കോൺഗ്രസാണെന്നും കുഞ്ഞാലിക്കുട്ടി പറ ഞ്ഞു വയനാട്ടിലെ സ്ഥാനാർത്ഥി കാര്യത്തിൽ എത്രയും വേഗം തീരു മാനം എടുക്കണമെന്ന് മുസ്ത്രീംലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാന്റിനോടാവശ്യപ്പെട്ടു പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് രാവിലെ കോൺഗ്രസ് ഹൈക്കമാന്റിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് ലീഗ് ഉന്നാതാധികാര സമിതി പാണക്കാട്ട് യോഗം ചേർന്ന് സ്ഥിതി വില യിരുത്തിയശേഷമായിരുന്നു ലീഗ് നിലപാടറിയിച്ചത്

സി ജോർജ്ജിന്റെ ജനപക്ഷം പാർട്ടി എൻ

എ യിൽ ചേരു ന്നത് സംബന്ധിച്ച് നിർണായക ചർച്ച ഇന്ന് നടക്കും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ബി

പി കേന്ദ്ര നേതാക്കളുമായി അവസാനവട്ട ചർച്ച നടത്തിയശേഷം മുന്നണി പ്രവേശംസംബന്ധിച്ചതീരുമാനം പി

ജോർജ്ജ് നാളെ പ്രഖ്യാ പിക്കും

പി ദേശീയ സെക്രട്ടറിമാരായ വൈ സത്യകുമാറും ബി എസ് സന്തോഷുമാണ് പി സി ജോർജ്ജിനെ കാണുന്നത് പത്ത നംതിട്ടയിൽ എൻ

എ സ്ഥാനാർത്ഥിക്ക് പി സി ജോർജ്ജ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ട്രെയിനുകളിൽ മേം ഭി ചൌക്കിദാർ എന്ന് മുദ്രണം ചെയ്ത കടലാസ് കപ്പുകളിൽ ചായ വിതരണം ചെയ്യുന്നത് റെയിൽവെ തടഞ്ഞു കരാറുകാരൻ റെയിൽവെയുടെ അനുമതിയില്ലാതെ കപ്പു കളിൽ ഈ സന്ദേശം പതിപ്പിക്കുകയായിരുന്നുവെന്ന് റെയിൽവെ കേന്ദ്രങ്ങൾ അറിയിച്ചു നടപടിക്കെതിരെ കരാറുകാരന് ഒരുലക്ഷം രൂപ പിഴ ചുമത്തിയതായി ഐ

ടി സി അറിയിച്ചു കരാറു കാരനോട് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്

പുതിയ അപേക്ഷകൾ ബി എൽ

ഗ്രാന്റ് ബസാറിൽ ഇന്നലെ രാത്രി നടത്തിയ വാഹനപ രിശോധനയിലാണ് കണക്കിൽപ്പെടാത്ത പണം പിടികൂടിയത് ലോക്സഭാതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംശയാസ്പദമായ വാഹനങ്ങൾ പരിശോധിച്ചുവരികയാണെന്നും പണം പിടികൂടിയ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടെന്നും പൊലീസ് പറഞ്ഞു

ലോക്സഭാതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ചെലവ്നിരീക്ഷകർ കൊച്ചിയിലെത്തി

പാലക്കാട് ജില്ലയിൽ ഹരിത ഇലക്ഷൻ ശുചിത്വ ഇലക്ഷൻ സന്ദേശം പ്രചരിപ്പിക്കുന്ന സൈക്കിൾ റാലി ഇന്ന് നടക്കും രാവിലെ നഗരത്തിലെ വാടികയിൽ നിന്ന് ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്യും തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരപീഡനത്തിന് ഇരയായ ഏഴുവയസുകാരന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കുട്ടിയെ വെൻറിലേറ്ററിൽ നിന്ന് മാറ്റു ന്നത് സംബന്ധിച്ച് മെഡിക്കൽ സംഘം അൽപ്പസമയത്തിനകം തീരുമാനമെടുക്കും അതിനിടെ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം കവടിയാർ സ്വദേശി അരുൺ ആനന്ദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കുട്ടി പീഡനത്തിനിരയായ കുമാരമംഗല ത്തെ വീട്ടിൽ രാവിലെ ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മിഷനും കേസെടുത്തു കുട്ടിയെ ആശുപത്രിയിലേക്കു കൊണ്ടു വന്ന പ്രതിയുടെ കാറിൽ നിന്നും പൊലീസ് തെളിവുകൾ ശേഖരിച്ചു കാറിനുള്ളിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പിടിയോടു കൂടിയ ചെറിയ മഴു പുതിയതാണെന്നാണു സൂചന

ഇന്ത്യയുടെ സ്റ്റീൽ അലൂമിനിയം ഉല്പന്നങ്ങൾക്ക് അമേരിക്ക ഉയർന്ന നികുതി ചുമത്തിയതിനെതിരെ തത്തുല്യ നടപടിയെടുക്കാൻ കഴിഞ്ഞ ജൂണിൽ കേന്ദ്രം തീരുമാ നിച്ചിരുന്നു ജമ്മുകശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ സുരക്ഷാസേനയും ഭീക രരും തമ്മിൽ ഏറ്റുമുട്ടി ഇന്നലെ രാത്രി ആരംഭിച്ച ഏറ്റുമുട്ടൽ തുട രുകയാണ് ഇന്ന് ലോക ഭൌമദിനം ആഗോളതാപനം നേരിടാനും പരി സ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ഇരുനൂറോളം രാജ്യങ്ങളിൽ ഭൌമദിനം ആചരിക്കു ന്നത് രാത്രി എട്ടര മുതൽ ഒമ്പതര വരെ വിളക്കുകൾ അണച്ച് ഭൂമിക്ക് സാന്ത്വനം പകരും ഇന്ത്യയിലും ഭൌമദിനാചരണം വർഷ ങ്ങളായി നടത്തിവരുന്നുണ്ട് സംസ്ഥാനത്ത് കനത്ത ചൂടും വരൾച്ചയും തുടരുന്ന സാഹ ചരൃത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അതീവ ജാഗ്രതാ നിർദേശം കുറച്ചുദിവസത്തേക്കുകൂടി നീട്ടി

പാലക്കാട് ജില്ലയിൽ സൂര്യാതപത്തിന് പുറമെ മഞ്ഞപ്പിത്തവും ചിക്കൻപോക്സും പടർന്ന് പിടിക്കുന്നതായും റിപ്പോർട്ടുണ്ട്

ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസ സിന്റെ ആസ്ഥാനത്തുനിന്നാണ് പണം പിടികൂടിയത് സ്ഥാപന ത്തിന്റെ ഡയറക്ടർ ജനറലാണ് ഫാ

സംഭവ ത്തിൽ താനെ മുംബൈ എന്നിവിടങ്ങളിൽ നിന്നായി ഒരു സ്ത്രീ ഉൾപ്പെടെ ആറുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൊഴിയെ ടുത്ത ശേഷം ഫാ ആൻണി മാടശ്ശേരിയെയും കൂട്ടാളികളെയും വിട്ടയച്ചു

ഭാരതപ്പുഴയിലെ തടയണകൾ നിറയ്ക്കാൻ മലമ്പുഴ ഡാമിൽ നിന്നും ഇന്ന് മുതൽ വെള്ളം തുറന്നുവിടാനെടുത്ത തീരുമാനം തൽക്കാലത്തേക്കു മാറ്റിയതായി ജലസേചന വകുപ്പ് അറിയിച്ചു ആളിയാർ ജലം തടയണകളിൽ സംഭരിക്കാൻ കഴിഞ്ഞതോടെയാണ് വെള്ളം തുറക്കാനുള്ള തീരുമാനം മാറ്റിയത് മുംബൈയിൽ വൻ സ്വർണവേട്ട

കലാ ശപോരാട്ടത്തിൽ ഇന്ത്യ ആതിഥേയരായ ദക്ഷിണ കൊറിയയെ നേരിടും

ഇന്നലെ ദുർബലരായ പോളണ്ടിനെ ഇന്ത്യ മറുപടിയില്ലാത്ത പത്തു ഗോളിന് തകർത്തിരുന്നു ഒരു കളിയും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനൽ ബർത്ത് നേടിയത്

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകീട്ട് നാലിന് മുംബൈ ഇന്ത്യൻസ് കിംഗ്സ് ഇലവൻ പഞ്ചാബിനെയും രാത്രി എട്ടിന് ഡൽഹി ക്യാപ്പിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേ ഴ്സിനെയും നേരിടും